ചരിത്ര മുന്നേറ്റത്തിന് നാന്ദികുറിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

റക്സോൽ കാഠ്മണ്ഡു റെയിൽപ്പാത്യുടെ പ്രാഥമിക പഠനത്തിന് ന് ഇന്തൃയും നേപ്പാളും തമ്മിൽ ധാരണാ പത്രം

നിർമ്മിക്കുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം

ു സ്വർണ്ണം കൂടി

ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിനെ നയിക്കാൻ രോഹിത് ശർമ്മ

ബാങ്കിംഗ് സേവനം് സാധാരണക്കാരന്റെ വാതിൽപ്പടിയിൽ എത്തുന്ന സംവിധാനം ബാങ്കിംഗ് മേഖലയിലെ ചരിത്രപ്രമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യത്തിന്റെ വിദൂരമായ സ്ഥലങ്ങളിൽ പോലും ബാങ്കിംഗ് സംവിധാനം എത്തിക്കാനാകുമെന്നതാണ് പുതിയ സംവിധാനത്തിന്റെ പ്രത്യേകത മുൻകാല കോൺഗ്രസ് ഗവൺമെന്റുകളുടെ നയവൈകല്യമാണ് ബാങ്കിംഗ് മേഖലയെ തകർത്തത് ബാങ്കുകളുടെ നിഷ്ക്രിയ ആസ്തി കുറയ്ക്കുന്നതിനോ മേഖലയിൽ പരിഷ്ക്കരണ നടപടികൾ ഏർപ്പെടുത്താൻ മുൻകാല കോൺഗ്രസ് ഗവൺമെന്റുകൾക്ക് കഴിഞ്ഞിട്ടില്ലെന്നും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി എൻ ഡി എ ഗവൺമെന്റിന്റെ കഴിഞ്ഞ നാലു വർഷത്തെ ഭരണത്തിനിടെ വൻകിട വായ്പകൾ ഒന്നും തന്നെ നൽകിയിട്ടില്ലെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

രാജ്യത്തെ ഏറ്റവും വിശ്വാസയോഗ്യമായ സംവിധാനമാണ് ഇന്ത്യൻ പോസ്റ്റെന്ന് അദ്ദേഹം പറഞ്ഞു

ന്യൂഡൽഹിയിൽ സുപ്രീംകോടതി അഭിഭാഷകരുടെ ദേശീയ കോൺഫറൻസിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം

സാധാരണക്കാർക്ക് നീതി ലഭ്യമാക്കുന്നതിൽ ഇന്ത്യൻ നീതിന്യായ സംവിധാനം വഹിക്കുന്ന പങ്കിനെ കുറിച്ച് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ മതിപ്പാണുള്ളത്

ഇന്ന് ഇലക്ടോണിക് കോടതികൾ രാജ്യത്ത് എല്ലായിടത്തുമു ലൈംഗികാക്രമണ കേസുകളിൽ ഇരകൾക്ക് വളരെവേഗം നീതി ലഭ്യമാക്കാൻ സാധിക്കണം ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി കേസുകൾ നിരീക്ഷിക്കുന്നതിന് ഓൺലൈൻ സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുളളതായി രാഷ്ട്രപതി ചൂ ന്യൂസ് ഡെസ്ക് ആകാശവാണി

കർബി ആങ്ലോങ് ജില്ലയിൽ കഴിഞ്ഞ ജൂൺ എട്ടിന് ര ു യുവാക്കളെ ആൾക്കൂട്ടം മർദ്ദിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു കുറ്റവാളികൾക്കെതിരെ മതിയായ തെളിവുകൾ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടു ന്ന് സംസ്ഥാന പോലീസ് മേധാവി കുലാദർ സെക്കിയ ഗുവാഹത്തിയിൽ പറഞ്ഞു

നവംബർ എട്ടിനും ഡിസംബർ നാലിനും മദ്ധ്യേ എട്ട് ഘട്ടങ്ങളിലായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും നടക്കും സംസ്ഥാന ഗവർണ്ണർ സത്യപ്പാൽ മാലിക്കിന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന ഭരണകൌൺസിൽ വിവിധ ് വകുപ്പുകളുമായി വിശദമായ കൂടിയാലോചന നടത്തി

അഞ്ചു സീറ്റുകളിൽ സ്വതന്ത്രർ വിജയിച്ചു

്നക്സൽ ്വിരുദ്ധ നീക്കത്തിനായി സഞ്ചരിച്ചിരുന്ന ജില്ലാ റിസർവ് ഗാർഡ് അംഗങ്ങളാണ് സ്ഫോടനത്തിന് ഇരയായത്

ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ ഏകോപിപ്പിച്ച സംസ്ഥാനത്തെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ അഭിനന്ദിക്കുന്നതിന് തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നാടിനെ ലോകനിലവാരത്തിൽ ഉയർത്തിയെടുക്കാൻ അന്താരാഷ്ട്ര ഏജൻസികളുടെയടക്കം സഹായം തേടി മുന്നോട്ടുപോകും മഹാദുരന്തത്തെ മഹാപ്രയത്നത്തിലൂടെ അതിജീവിച്ച നാടെന്ന് കേരളത്തെ ലോകം വാഴ്ത്തുമെന്ന് ശ്രീ പിണറായി വിജയൻ പറഞ്ഞു

ബംഗ്ളൂരിൽ നിന്ന് തിരുവല്ലയിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ് ്മറ്റൊരു സ്വകാര്യ ബസുമായി് കൂട്ടിയിടിച്ചാണ് അപകടം സംഭവിച്ചത് മരിച്ചവരിൽ ആറ് പേർ മലയാളികളാണ് പരിക്കേറ്റവരെ സേലത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു

കാഠ്മണ്ഡുവിൽ ഇന്നലെ പ്രധാനമന്ത്രി നര്യ്ന്ദമോദി നേപ്പാൾ പ്രധാനമന്ത്രി കെ

ഇന്ത്യയുടെ സാമ്പത്തിക സഹായത്തോടെ റക്സോലുനെയും കാഠ്മണ്ഡുവിനെയും ബന്ധിപ്പിക്കുന്ന വൈദ്യൂതീകരിച്ച റെയിൽവേ ലൈൻ സ്ഥാപിക്കുന്നതിന് ഈ വർഷം ഏപ്രിലിൽ ഇരു രാജ്യങ്ങളും കരാറിൽ ഒപ്പിട്ടിരുന്നു

സ്വമേധയ നികുതി അടയ്ക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചതാണ് ആദ്യ നികുതി വർദ്ധനയ്ക്ക് കാരണം

പുരുഷ ഹോക്കിയിൽ പാകിസ്ഥാനെ ഒന്നിനെതിരെ ര ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ഇന്ത്യ വെങ്കലം നേടി

ഒളിമ്പിക് ചാമ്പ്യനായ ഉസ്ബക്കിസ്ഥാന്റെ ഹസൻബോയ് ദസ്മത്തോവിനെ ഇടിച്ചിട്ടാണ് അമിത് സ്വർണ്ണം നേടിയത്

ആദ്യമായി ഏഷ്യൻ ഗെയിംസിൽ അവതിരിപ്പിച്ച ബ്രിജിൽ പ്രണബ് ബർധൻ ഷിബ്നാഥ് സർക്കാർ സഖ്യമാണ് ഇന്ത്യക്കായി സ്വർണ്ണം നേടിയത്

അതേസമയം സ്ക്വഷിൽ ഇന്ത്യിടെ സ്വർണ്ണ പ്രതീക്ഷ വെള്ളിയിലൊതുങ്ങി

ന്യൂസ് ഡെസ്ക് ആകാശവാണി

വിരാട് കോലിയ്ക്ക് വിശ്രമം അനുവദിച്ചതോടെ രോഹിത് ശർമ്മ ടീമിനെ നയിക്കും

പരിക്കിനെ തുടർന്ന് ഇംഗ്ല പര്യടനത്തിനുള്ള ടെസ്റ്റ് ടീമിൽ നിന്ന് ഒഴിവാക്കിയ ഭൂവനേശ്വർ കുമാർ ടീമിൽ തിരിച്ചെത്തി അ് രവിചന്ദ്രൻ അശ്വിൻ രവീന്ദ്ര ജഡേജ എന്നിവർക്ക് ഇക്കുറിയും ടീമിൽ ഇടംനേടാനായില്ല